മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ഈ വർഷത്തെ ബാലൺ ഡി ഓർ പുരസ്കാരം ലിയോണൽ മെസിക്ക്

ഭാവിയിൽ ഉണ്ടാകുന്ന വെല്ലുവിളികൾ നേരിടുന്നതിന് സാങ്കേതികരംഗത്തും പുതുസംരംഭകത്വ മേഖലയിലും നേതൃത്വം വഹിക്കുന്നവർ തമ്മിലുളള സഹകരണം ശക്തമാക്കണമെന്ന് ഇരുവരും ഊന്നിപ്പറഞ്ഞു സാമ്പത്തിക സുസ്ഥിരത ആരോഗ്യമേഖലയിലെ നവീകരണം സുസ്ഥിര ഊർജ്ജം തുടങ്ങി നിരവധി വിഷയങ്ങളിൽ സഹകരണം ശക്തിപ്പെടുത്തേണ്ടതിന്റെ പ്രാധാന്യം ചർച്ച ചെയ്തു കാർഷിക മേഖലയിൽ ഉത്തേജനം നടപ്പാക്കുന്നതിന്റെ ഭാഗമായി കാർഷിക മാലിന്യങ്ങൾ കൽക്കരിയായി മാറ്റുന്ന പദ്ധതിക്ക് ഇരുരാജ്യങ്ങളും അംഗീകാരം നൽകി നെൽവയലുകളിൽ നിന്ന് മിച്ചം വരുന്ന ഉൽപ്പന്നങ്ങളാണ് കൽക്കരിയായി മാറ്റുക

ഇതിന്റെ തുടർച്ചയായാണ് സന്ദർശനം നട്ടണ്ടിൽ പർമാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ ക്ഷണപ്രകാരം സ്വീഡിഷ് രാജ്ട്വും രാജ്ഞിയും ഇന്നലെയാണ് ഇന്ത്യാ സന്ദർശത്തിനെത്തിയത്

ഡ്വൽക്കിയിലെ ഔദ്യോഗിക പരിപാടികൾക്കു പുറമേ രാജാവും രാജ്ഞിയും മുട്ടബ്രെയും ഉത്തരാഖണ്ഡും സന്ദർശിക്കും

കമ്മീഷന്റെ ആദ്യ വനിതാ പ്രസിഡന്റെന്ന നിലയിൽ ഉർസുല ലെയെന്റെ നേതൃത്വം ഏറെ പ്രസക്തമാണെന്ന് പ്രധാനമന്ത്രി ടെലഫോൺ സംഭാഷണത്തിൽ പറഞ്ഞു

വിവിധ പാർട്ടികളുടെ ദേശീയ നേതാക്കളെല്ലാം പ്രചാരണത്തിൽ സജീവമാണ്

ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അഞ്ചാം ഘട്ടത്തിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന ദിവസം ഇന്നാണ്

പ്രമുഖ പാർട്ടികളിലെ ദേശീയ പ്രാദേശിക നേതാക്കളെല്ലാം പ്രചാരണ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഖുന്തിയിലും ജംഷഡ്പൂരിലുമായി രണ്ട് തെരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്യും ബിജെപി ദേശീയ അദ്ധ്യക്ഷൻ അമിത് ഷാ ഇന്നലെ രണ്ട് തെരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്തിരുന്നു സംസ്ഥാനത്ത് നിന്നും നക്സൽ പ്രവർത്തനങ്ങൾ ഇല്ലാതാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു

എൽ ജീർഖണ്ഡ് വികാസ് മോർച്ച തുടങ്ങിയ പാർട്ടികളും പ്രചാരണത്തിൽ സിജ്ജീവ്മാണ്

മൂന്ന് ലക്ഷം കോടി രൂപയുടെ പദ്ധതിയെ ശിവസേന എതിർത്തിരുന്നു പ്രക്ഷോഭകർക്കെതിരായ കേസുകൾ പിൻവലിക്കുമെന്ന് ഉദ്ധവ് താക്കറെയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ വാഗ്ദാനം ചെയ്തിരുന്നു

ഇറക്കുമതി ചെയ്യുനന ഉള്ളി മിതമായ വിലയിൽ ജനങ്ങൾക്ക് ലഭ്യമാക്കണമെന്നും കേന്ദ്ര ഗവൺമെന്റ് ആവശ്യപ്പെട്ടു ക്യാബിനറ്റ് സെക്രട്ടറി രാജീവ് ഗൌബയുടെ നേതൃത്വത്തിൽ ഇന്നലെ ചേർന്ന അവലോകനയോഗമാണ് ഇത് സ്ലംബന്ധിച്ച ആവശ്യം സംസ്ഥാനങ്ങളോട് ഉന്നയിച്ചത്

ഇപ്പോൾ നിലനിൽക്കൂന്നത് താൽക്കാലിക ലഭ്യതക്കുറവാ ണൈന്നും യോഗം വിലയിരുത്തി

ലൂണാർ ഓർബിറ്റർ എടുത്ത ചിത്രങ്ങൾ താരതമ്യം ചെയ്ത ശേഷമാണ് നാസയുടെ സ്ഥിരീകരണം

ഭിന്നശേഷിക്കാർ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ഒപ്പം നിൽക്കുകയും അവയ്ക്ക് പരിഹാരം കാണണമെന്ന് ഓർമ്മിപ്പിക്കുകയും കൂടിയാണ് ഈ ദിനം ലക്ഷ്യമിടുന്നത്

ഭിന്നശേഷിക്കാർക്ക് ജോലി ചെയ്യുന്നതിനും വിവിധ സ്ഥാപനങ്ങളിൽ പ്രവേശിക്കുന്നതിനും പ്രത്യേക സൌകര്യം ഒരുക്കണമെന്ന ആവശ്യം ഇക്കൊല്ലവും സജീവമാണ്

മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ ഉൾപ്പെടെയുള്ള പദ്ധതികളാണ് പരിശോധിക്കുന്നത്

സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി സംബന്ധിച്ച് ധവളപത്രം ഇറക്കുമെന്നും ഉദ്ധവ് താക്കറെ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു

അക്രമസംഭവങ്ങൾക്ക് നേതൃത്വം നൽകി എന്നാരോപിച്ചാണ് ഇദ്ദേഷ്ടത്തിനെതിരെ കേസ് എടുത്തത് പൂനെ ജില്ലയിലെ കൊറിഗാവ് ഭീമ മേഖലിയിൽ ്ഗൌതം നവ്ലഖ കലാപത്തിന് നേതൃത്വം നൽകിയെന്നാണ് കേസ്

എൻ കാലാവസ്ഥാ സമ്മേളനത്തിന്റെ ഉദ്ഘാടന സെഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

വനിതാ വിഭാഗത്തിൽ അമേരിക്കയുടെ മേഗൻ റപിനോയ്ക്കാണ് ബാലൺ ഡി ഓർ യുഎസിനെ ലോക കിരീടത്തിൽ ഒരിക്കൽക്കൂടി മുത്തമിടാൻ സഹായിച്ചതാണ് മേഗനു നേട്ടമായത്